ജമ്മുകശ്മീരിൽ വെടിനിർത്തൽ ക്ര്ാർ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്മണത്തിൽ മൂന്ന് സൈനികർക്കും ഒരു ബി എസ് എഫ് ജവാനും വീരമൃത്യു ശബരിമലയിൽ ആദ്യു ർണ്ടു ദിവസങ്ങളിൽ വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ പ്ലെയ്ത ശേഷം ദർശനത്തിന് എത്താത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായി കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു

വിജയരാഘവന് താൽക്കാലിക ചുമതല നന്മയുടെ പ്രകാശം പകർന്ന് നാളെ ദീപാവലി എല്ലാ മലയാളികൾക്കും സംസ്ഥാന ഗവർണറും മുഖ്യമന്ത്രിയും ദീപാവലി ആശംസകൾ നേർന്നു

കോഴിക്കോട് എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

ജമ്മുകശ്മീർ ജമ്മുകശ്മീരിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് സൈനികർക്കും ഒരു ബി

മൂന്ന് ഗ്രാമവാസികളും പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു

മേഖലയിൽ ശക്തമായ ആക്രമണം തുടരുകയാണ് ബരാമുള്ള ജില്ലയിലെ ധവാർ മേഖലയിലാണ് ഏകപക്ഷീയമായി പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയത് കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല തീർഥാടനത്തിന്റെ ആദ്യ രണ്ടു ദിവസങ്ങളിൽ വെർച്ചൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്തവരിൽ ദർശനത്തിന് എത്താത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതോദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് വെർച്ചൽ തീരുമാനം

ഇതിനായി ഓരോ തീർത്ഥാടകർക്കും സ്ഥലം അടയാളപ്പെടുത്തി നൽകും

കോടിയേരി ബാലകൃഷ്ണന്റെ ആവശ്യം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗീകരിക്കുകയായിരുന്നു

വോയ്സ് കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെയാണ് ഇക്കുറി ദീപാവലിയുടെ കടന്നു വരവ് ആഘോഷങ്ങൾ വീടുകൾക്കുള്ളിലേക്ക് ഒതുക്കിയുള്ള ദീപാവലിയായതിനാൽ വിപണിയിൽ സാധാരണയുള്ളത്ര ഉണർവ് ഇത്തവണ പ്രകടമാകുന്നില്ല

പടക്കങ്ങൾ പൊട്ടിക്കുന്നതിലെ അന്തരീക്ഷ മലിനീകരണ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ഇക്കുറി പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

വായു മലിനീകരണം കുറഞ്ഞ ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കുവാൻ പാടുള്ളൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്

ഡൽഹി രാജസ്ഥാൻ ഒഡീഷ തുടങ്ങി വായു മലിനീകരണം രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ ഇക്കുറി പടക്കം പൊട്ടിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ദീപാവലി ആഘോഷങ്ങൾ രാജൃത്ത് തുടരുമ്പോളും കോവിഡ് മഹാമാരിയ്ക്കിടയിലുള്ള കൂടിച്ചേരലുകൾ രോഗത്തിന്റെ വ്യാപനസാധ്യത ഉയർത്തുമോയെന്ന ആശ്രങ്ക പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദീപങ്ങളുടെ ഈ ആഘോഷവേളയിൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അറിവിന്റെയും കരുണയുടെയും ഒരുമയുടെയും ദിവൃപ്രകാശം പ്രതിഫലിക്കട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു

മനുഷ്യത്തിന്റെ പ്രകാശന വേളയാക്കി ദീപാവലിയെ മാറ്റാൻ സാധിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു

ശൈലജ കോവിഡ് കാലത്ത് പ്രമേഹ രോഗികൾ ഏറെ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ മന്ത്രി കെ

ലോക പ്രമേഹ ദിനം നാളെ കടന്നു വരാനിരിക്കെയാണ് ഈ ഓർമപ്പെടുത്തൽ പ്രമേഹ രോഗ നിയന്ത്രണത്തിൽ നഴ്സുമാരുടെ പ്രാധാനൃം ഓർമ്മിപ്പിച്ചുകൊണ്ട് നഴ്സുമാർക്ക് മാറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് ഈ വർഷത്തെ പ്രമേഹദിന സന്ദേശം പ്രമേഹമുള്ളവർക്ക് കോവിഡ് ബാധയുണ്ടായാൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ വൃതിയാനമുണ്ടാകുന്നതു കൊണ്ട് പ്രമേഹ രോഗത്തിന്റെ സങ്കീർണതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് പ്രത്യേക ജാഗ്രത ആവശ്യമായിത്തീരുന്നത്

വൈറ്റില റൂട്ടിലാണ് ആദ്യസർവ്വീസ് തുടങ്ങിയത് വൈറ്റില ഹബ്ബിൽ നടന്ന ചടങ്ങിൽ കേരള മെട്രോ പൊളിറ്റിൻ ട്രാൻസ്പോർട്ട് അതോറിട്ടിയുടെ സി ഇ ഒ

അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനുളള ക്രിയാത്മക നടപടിയായി കൊച്ചി സ്മാർട്ട് ബസ് കൺസോർഷ്യമാണ് ബസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്

ശിവശങ്കർ ഇപ്പോൾ കൊച്ചി കാക്കന്യുട് ജില്ല ജയിലിൽ റിമാന്റിലാണ് അതേസമയം ലൈഫ്മിഷൻ ക്രമ്മക്കേടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിജിലൻസും ശിവശങ്കറിനെ ്ര ച്ചോദ്യം ചെയ്യാൻ അനുമതി തേടി കോടതിയെ സമീപിക്കും

പ്രോഗ്രാം ഉദ്ഘാടനത്തിന് ക്ഷണിച്ച പൊതുപ്രവർത്തകയോട് മോശം പരാമർശം നടത്തിയതായാണ് വിനായകനെതിരായ കേസ് ഇടുക്കി ഇൻട്രോ തേക്കടിയിലേയ്ക്ക് വിനോദ സഞ്ചാരികൾക്ക് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് ഏർപ്പെടുത്തി വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

കോവിഡ് പ്രതിരോധ മാർഗ്ഗങ്ങൾ പാലിക്കാതെ ്ആളുകൾ എത്തുന്നത് രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നിരോധിച്ചത്

കോഴിക്കോട് സ്വദേശി ഇസ്മയിൽ കാർണാട്ടക്ക് ൂസ്ദേശി റയാൻ ഹസൻ എന്നിവരിൽ നിന്നാണ് സ്വർണ്ണ്ട് പിടിച്ചെടുത്തത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ദുബായിൽ നിന്ന് എത്തിയതായിരുന്നു ഇവർ ഓഹരിസ്വർണ്ണം ഇന്ന് രാവിലെ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ച ഓഹരി സൂചികകൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു

സ്വർണ്ണവിലയിൽ വർദ്ധന

മൂന്ന് ഏകദിനങ്ങളും നാല് ടെസ്റ്റ് മത്സരങ്ങളുമാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്

പതിനാല് ദിവസത്തെ ്കാറന്റൈനൊപ്പം പരിശീലനവും തുടരാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്